ബി

ഫ്രാൻസും ബെൽജിയവും ആദ്യസെമിയിൽ ഏറ്റുമുട്ടും

ഇതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ അഡ്വക്കറ്റ് ജനറലിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യ പ്പെട്ടു കോടതി നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യാമെന്ന് കേന്ദ്രവും സുപ്രീംകോടതിയെ അറിയിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട നിർഭയ കേസിൽ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മൂന്ന് പ്രതികൾ സമർപ്പിച്ച പുനഃപരിശോധന ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറ യും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബഞ്ചാണ് വിധി പറയു ന്നത് കേസിലെ നാലു പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും ഒരാൾ പുനഃപരിശോധന ഹർജി സമർപ്പിച്ചിരുന്നില്ല

കഴിഞ്ഞവർഷം മെയ് അഞ്ചിനാണ് കീഴ്ക്കോടതിയും ഹൈക്കോടതിയും വിധിച്ച വധശിക്ഷ സുപ്രീം കോടതി ശരിവെച്ചത്

കർണാടക സ്വദേശികളായ തലപ്പാടി കെ സി റോഡിലെ ബീഫാത്തിമ മകൾ നസീമ ബീഫാത്തിമയുടെ മകളുടെ ഭർത്താവ് മുഷ്താഖ് മുഷ്താഖിന്റെ മകൻ ഫവാസ് ബീഫാത്തിമയുടെ ചെറു മകൾ അസ്മ അസ്മയുടെ ഭർത്താവ് ഇംതിയാസ് എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് കുട്ടികളെ മംഗലാപുരത്തെ സ്വകാര്യ ആശു പത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരാളുടെ നില അതീവ ഗുരുതരമാണ്

മംഗളുരു ഭാഗത്തുനിന്ന് ചരക്കു മായി കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ലോറി മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പുമായി കൂട്ടിയിട്ടിച്ചാണ് അപകടം പതിമൂന്ന് പേരാണ് ജീപ്പിലുണ്ടായിരുന്നത് ലോറിയുടെ മുൻവശത്തെ ടയർ പൊട്ടിയതാണ് അപ കടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ബാങ്ക് വായ്പയുടെ പേരിൽ കിടപ്പാടം ജപ്തി ചെയ്യരുതെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു കൊച്ചി ഇടപ്പള്ളിയിലെ വീട്ടമ്മയുടെ വീട് ജപ്തി ചെയ്യാനുള്ള നടപടികൾ നിർത്തിവെച്ച് ഗവൺമെന്റ് അടക്കമുള്ളവരുമായി ബാങ്ക് ചർച്ച നടത്തണ മെന്ന് അദ്ദേഹം സ്വകാര്യ ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു

വായ്പയെടുത്തതിന് ജാമ്യം നിന്നതിന്റെ പേരിൽ ഇടപ്പള്ളി സ്വദേശിനി പ്രീത ഷാജിയുടെ വീടും സ്ഥലവും സ്ഥകാര്യ ബാങ്കിനുവേണ്ടി ജപ്തി ചെയ്യുന്നതിനിടെയായിരുന്നു സംഘർഷം ഇവർക്ക് പിന്തുണയുമായി നാട്ടുകാർ മണ്ണെണ്ണയും പെട്രോളുമായി വീടിന് മുന്നിൽ പ്രതിഷേധിച്ചു പ്രതിഷേധക്കാർ തീയിട്ടത് ഫയർഫോഴ്സ് എത്തി അണച്ചു

ജപ്തി ചെയ്താൽ മരിക്കുമെന്നും വീട് ഒഴിഞ്ഞുകൊടു ക്കില്ലെന്നും വീട്ടമ്മ പ്രീത ഷാജി പറഞ്ഞു

ഇന്ത്യൻ സമയം രാവിലെ എട്ടരയോടെയാണ് രക്ഷാദൌത്യം പുനരാരംഭിച്ചത് നാലു കുട്ടികളെ ഇന്നലെ രക്ഷപ്പെടുത്തിയിരുന്നു

രണ്ടു പേരെ ഗുഹയിലെ സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട്

പുറത്തെത്തിക്കുന്ന കുട്ടികൾക്ക് അടിയന്തര വൈദ്യ സഹായം ലഭിക്കുന്നതിന് എല്ലാ സൌകര്യവും സജ്ജമാക്കിയിട്ടുണ്ട്

ദർശ്ശിക്കും മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും മേഘാലയ ഗവർണറും രാജ്യസഭാ ഉപാധ്യക്ഷനുമായിരുന്ന എം എം ജേക്കബിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് രണ്ടിന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പാലാ രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഫൊറോന പള്ളിയിൽ നടക്കും

രാമപുരത്തെ വസതിയിൽ പൊതുദർശനത്തിനുവെച്ച മൃത ദേഹത്തിൽ പ്രമുഖ രാഷ്ട്രീയനേതാക്കൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ ആദരാഞ്ജ ലി അർപ്പിച്ചു അട്ട്ട്ട്ട്ട്ട്ട്ട്ട സിനിമയിൽ അവസരങ്ങൾ നിഷേധിക്കുന്നുവെന്ന നടികൾ ഉൾപ്പെടെ യുള്ളവരുടെ പരാതികൾ അമ്മ എക്സിക്യൂട്ടീവ് യോഗം പരിശോധിക്കു മെന്ന് പ്രസിഡന്റ് മോഹൻലാൽ പറഞ്ഞു അമ്മയുടെ നിയമങ്ങളിൽ മാറ്റ ങ്ങൾ വരുത്തും വനിതകൾക്ക് സംഘടനയിൽ കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം അദ്ദേഹം കൊച്ചി യിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദിലീപിനെ തിരിച്ചെടുക്കരുതെന്ന് ജനറൽ ബോഡിയിൽ ആരും പറഞ്ഞിരുന്നില്ല ആരും എതിർപ്പ് പ്രകടിപ്പി ക്കാത്തതിനെ തുടർന്നാണ് ദിലീപിനെ തിരിച്ചെടുത്തത്

സിയു മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യുമെന്നും മോഹൻലാൽ പറഞ്ഞു

രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് അറിയാൻ കഴിയുന്ന ഗ്ലൂക്കോമീറ്റർ സൌജന്യമായി നൽകുന്നതുൾപ്പെടെ കാര്യ ങ്ങളാണ് പദ്ധതിവഴി ലക്ഷ്യമിടുന്നത്

ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ശ്രീജിത്തിന്റെ ഭാര്യ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഉച്ചകഴിഞ്ഞ് രണ്ടിന് വിധി പറയും പൊലീസുകാർ പ്രതിയായ ക്ഷേസിൽ നിലവിലെ അന്വേ ഷണം തൃപ്തികരമല്ലെന്നും സി ബി

അന്വേഷണം തൃപ്തികരമായി പുരോഗമിക്കുന്ന സാഹച ര്യത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്നാണ് ഗവൺമെന്റ് നിലപാട് രുട്ടിട്ടുള്ള ജമ്മുകശ്മീരിൽ കുപ്പാഡ ജില്ലയിലെ ഹന്ത്വാരയിൽ സൈന്യവുമായു ണ്ടായ ഏറ്റുമുട്ടലിൽ ഭീകരൻ കൊല്ലപ്പെട്ടു

ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹ സ്യവിവരത്തെ തുടർന്ന് ഇന്നലെ രാത്രി മുതൽ ഇവിടെ സൈന്യം തെരച്ചിൽ നടത്തിവരികയായിരുന്നു

രണ്ടായിരത്തിലധികം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളെയാണ് ഇത്തരത്തിൽ ഇന്റലിജൻസ് നിരീക്ഷിക്കുന്ന ത് മഹാരാജാസ് കോളജ് വിദ്യാർത്ഥി അഭിമന്യുവിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണം

ആദ്യ സെമിയിൽ ഫ്രാൻസ് ബെൽജിയത്തെ നേരിടും

കർദ്ദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേ രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് കന്യാസ്ത്രീ അന്വേഷണ സംഘത്തിന് കൈമാറിയ സാഹചര്യത്തിലാണ് മൊഴിയെടുക്കുന്നത്

കൺഫർമേഷൻ നടത്താത്തവരെ രണ്ടാം ഘട്ട അലോട്ട്മെന്റിൽ പരിഗ ണിക്കില്ല

രണ്ടാം അലോട്ട്മെന്റ് നാളെ വൈകിട്ട് പ്രസിദ്ധീകരിക്കും

രുട്ടിട്ട്ട്ട്ട്ട്ട്ട ദേശീയ മത്സ്യകർഷക ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും മത്സ്യ കർഷകർക്ക് അറിവു പകരുന്ന ശില്പശാലകളും നാളെ കൊല്ലത്ത് നടക്കും മന്ത്രി ജെ

മത്സ്യകർഷകർക്കുള്ള അവാർ ഡുകളും മന്ത്രി വിതരണം ചെയ്യും പ്രേരിത പ്രജനനത്തിലൂടെ മത്സ്യവിത്ത് ഉല്പാദനം സാക്ഷാത്കരിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞരായ ഡോക്ടർ ഹീരാലാൽ ചൌധരി ഡോക്ടർ കെ എച്ച്

രുട്ടിട്ടിട്ടുക പുതുതായി അനുവദിച്ച ഗാന്ധിധാം തിരുനൽവേലി ഹംസഫർ എക്സ്പ്രസ്സിന് കണ്ണൂരിലോ കാസർക്കോട്ടോ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് റെയിൽവെ ഡിവിഷൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു പ്രതിവാര സർവ്വീസ് നടത്തുന്ന ട്രെയിനിന് മംഗലുരു കഴിഞ്ഞാൽ നിലവിൽ കോഴിക്കോട്ടാണ് സ്റ്റോപ്പുള്ളതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ കണ്ണൂ രിൽ പറഞ്ഞു കേരളത്തിൽ കോഴിക്കോട് ഷൊർണ്ണൂർ എറണാകുളം തിരു വനന്തപുരം എന്നിവിടങ്ങളിലാണ് ഹംസഫറിന് സ്റ്റോപ്പുള്ളത്

ഓർക്കാടിയിലെ ഗണപതി ഭട്ടാണ് മരിച്ചത്

ടി

അവൽക്കുള് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായ ത്തുകളിലും ആയുർവേദ ഡിസ്പെൻസറികൾ സ്ഥാപിക്കണമെന്ന് കേരള ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കിടത്തി ചികിത്സയുള്ള സ്ഥാപനങ്ങളിൽ ആർ

ആയുർവേദ ചികിത്സാരംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിയ ഡോക്ടർമാരെ ചടങ്ങിൽ ആദരിച്ചു രുട്ടിട്ട്ട്ട്ട്ട്ട്ട കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ നൂറ്റി മൂന്നാം പിറന്നാൾ കൊയിലാണ്ടി ചേലിയയിൽ ഇന്ന് വിവിധ പരിപാടിക ളോടെ ആഘോഷിക്കും ഗുരു സ്ഥാപിച്ച ചേലിയ കഥകളി വിദ്യാലയത്തി ന്റെയും പ്രിയശിഷ്യരുടെയും നാട്ടുകാരുടെയും ആഘോഷദിനം കൂടിയാണ് വർഷങ്ങളായി അദ്ദേഹത്തിന്റെ പിറന്നാൾ കഥകളി വിദ്യാലയത്തിൽ നട ക്കുന്ന ആദരസമ്മേളനം വൈകീട്ട് കെ ദാസൻ എം

എ ഉദ്ഘാടനം ചെയ്യും

വിവിധ കർമ്മസമിതികളുടെ നേതൃത്വത്തിൽ ജില്ലയുടെ പലഭാ ഗത്തും ജനകീയ കൂട്ടായ്മകൾ നടക്കുകയാണ് ഭൂമിയെ കീറിമുറിച്ചും പ്രകൃ തിയെ നശിപ്പിച്ചുമാണ് ജലപാത നിർമ്മിക്കുന്നതെന്നാണ് കർമ്മ സമിതിയുടെ ആരോപണം

നിലവിൽ പ്രൊവിഡന്റ് ഫണ്ട് ഇനത്തിലോ ഇ

പുതിയ ഭരണസമിതിക്ക് സ്ഥാപനത്തിന്റെ പ്രവർത്തന നഷ്ടം കുറയ്ക്കാൻ സാധി ച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു